നടത്തണമെന്ന് ഉപരാഷ്ട്രപതി എം

എണ്ണത്തിൽ വർദ്ധനവ്

അസ്സമിൽ വീണ്ടും എൻഡിഎ സർക്കാർ വരണമെന്നാണ് ജഹ്ഗങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങളിൽ പ്പെങ്കെടുക്കുകയും സംവദിക്കുകയും ചെയ്ത്തിന്റെ ആത്മവിശ്വാസം തനിക്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നരേന്ദ്ര മോദി അഭിസംബോധന ചെയ്യുക

സി നേതാവ് മമതാ ബാനർജി അണികൾക്ക് ആവേശം പകരാനെത്തും

നേരത്തെ നാല് പോളിങ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു

വൃാഴാഴ്ച ബിജെപി സ്ഥാനാർത്ഥിയുടെ കാറിൽ വോട്ടിങ് യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതും വിവാദമായിരുന്നു

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയ സാഹചര്യത്തിലാണ് വീണ്ടും വോട്ടെടുപ്പിന് നിർദ്ദേശം നൽകിയത്

മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഇന്നും പ്രചാരണത്തിനെത്തുന്നുണ്ട്

വോയ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പൊതു സമ്മേളനങ്ങളും റാലികളുമായി രംഗം കൊഴുപ്പിക്കുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമിഴ്നാട്ടിൽ നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം കന്യാകുമാരി ലോക്സഭ സീറ്റിലേയ്ക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ ആറിന് നടക്കും

അതേ സമയം കേരളത്തിലും വാഹന പ്രച്ചാർണ്ണവും റാലികളും ഉച്ചഭാഷിണി പ്രചാരണവും ഇന്നും കൃത്യാളെയുമായി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ കേരളത്തിൽ കോവിഡ് വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ കൊട്ടിക്കലാശത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധനം ഏർപ്പെടുത്തി

വോട്ടെടുപ്പിന് മൂന്ന് ദിവസം ശേഷിക്കെ പോളിങ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തിങ്കളാഴ്ച രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ പോളിങ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് നീങ്ങും

തുടർന്ന് ചേർത്തലയിൽ നടക്കുന്ന എൻ

കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കണ്ണൂർ കൂത്തുപറമ്പിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രി പ്രഹ്ളാദ് ജോഷി ഇന്ന് കുന്നത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ എൻ

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ പ്രചാരണം തുടരുകയാണ്

ഐ നേതാവ് കനയ്യ കുമാർ ഇന്ന് ആലപ്പുഴയിൽ എൽ ഡി

കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പിപിധ യുഡിഎഫ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും

രാഷ്ട്രൂീയ് പാർട്ടികളും സ്ഥാനാർത്ഥികളും വ്യക്തികളും നൽകുന്നുപ്പർസ്യങ്ങൾക്ക് നിബന്ധന ബാധകമാണ്

സംഭവത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കമ്മീഷൻ വിവാദങ്ങളിലെ വസ്തുതകൾ പരിശോധിക്കുന്നതിനായി ബിഹാർ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എച്ച് ആർ ശ്രീനിവാസയെ കേരളത്തിലേക്ക് അയച്ചു

എയിംസിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് തന്റെ രോഗ ശാന്തക്കായി പ്രാർത്ഥിച്ച എല്ലാവർക്കും അദ്ദേഹം ശസ്ത്രക്രിയയക്കുശേഷം നന്ദി അറിയിച്ചി്രുന്നു

ലോക്ഡൌൺ ഈ പ്രശ്നത്തിന് പരിഹാരമല്ലെന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് കടുത്തു തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടെതെന്നും അദ്ദേഹ് പ്യക്തമാക്കി

ബി എസ്

മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യാം സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു